സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഒന്നാം ഇന്നിംഗസിൽ ഓസ്ട്രേലിയയ്ക്ക് ബാറ്റിംഗ് തകർച്ചു

തുടർന്ന് ഒഡിഷയിലെത്തുന്ന അദ്ദേഹം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബല്യസോർ ഹാല്ഡിയ ദുർഗാപൂർ പരിധിയിലുള്ള എൽപിജി പൈപ്പ് ള്ളെൻപ് പദ്ധതിയും ബലസോറിലെ ലോജിസ്റ്റിക്ക് പാർക്കും രാജ്യത്തിന് സ്മർപ്പിക്കും നാലുവരി ദേശീയപാത പദ്ധതിയും ആറ് പാസ്പോർട്ട് സ്സ്വീന്റകേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ടാറ്റാ നഗറിൽ സിന്നും ബദംപഹറിലേക്കുള്ള രണ്ടാമത്തെ പാസ്സഞ്ചർ ട്രെയിനും ഫ്ളൌഗ്ഓഫ് ചെയ്യും

കൂടാതെ പുരാതന റാസിഗ റായി ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള സംരംഭത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും

പ്രദേശത്ത് തീവ്രവാദികളുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെത്തുടർന്നു തെരച്ചിൽ നടത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു തുടർന്നാണ് തീവ്രവാദികൾ വെടിയുതിർത്തത് ഈ സമയത്ത് രണ്ടോ മൂന്നോ തീവ്രവാദികൾ പ്രദേശത്ത് അകപ്പെട്ടതായും സുരക്ഷാസേന അറിയിച്ചു

പൂഞ്ച് ജില്ലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ചില ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ആൾതാമസമുള്ള മാൻകോട് കൃഷ്ണഘടി എന്നീ മേഖലകളിലും യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയുമായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ ശക്തമായി തിരിച്ചുടിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ ആർക്കും തന്നെ പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഇയാൾക്ക് നിരോധിത തീവ്രവാദ സംഘടനയായ ഹിസ്ബുൾ മുജാഹിദ്ദീനുമായി ബന്ധമുണ്ടെന്നും തന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം സൌദി അറേബൃയിലെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടായിരുന്നു എന്നുമാണ് എൻഐഎ പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പാക്കിസ്ഥാനിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് ഹവാലയായി പണം അയയ്ക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്

കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് തടയുന്നതിനുള്ള നിയമമനുസരിച്ചാണ് ജപ്തിക്കായുള്ള ഉത്തരവിറക്കിയത് വദേശത്തുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടി ആരാഞ്ഞശേഷമായിരിക്കും നട്പടി

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇരുവരും ഒളിവിൽ പോകുകയായിരുന്നു

ചിലയിടങ്ങളിൽ കുറഞ്ഞ രാത്രി താപനില ശരാശരിയിൽ നിന്നും അല്പം ഉയർന്നിട്ടുണ്ടെങ്കിലും പകൽ താപനിലയിലുള്ള കുറവും ശീതക്കാറ്റും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു

ഉത്തർപ്രദേശിന്റെ കിഴക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പടിഞ്ഞാറ് ചില സ്ഥലങ്ങളിലും ഇടിയോടു കൂടി മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ആദിവാസി മേഖ്ലകളിൽ താപനില വളരെ താഴ്ന്നതിനാൽ ജനങ്ങൾ അതിശൈത്യത്താൽ ബുദ്ധിമുട്ടുകയാണ് ഷിംല നൽകണ്ട കുഫ്രി കൽപ ഡെൽഹൌസി മണ്ണാലി തുടങ്ങിയ പ്രമുഖ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും കനത്ത് മഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുകയോ മല കയറ്റൂക്ടയോ ചെയ്യരുതെന്ന് സംസ്ഥാന ഗവൺമെന്റും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

പ്രത്യേക പരിഗണന ആവശ്യമുള്ള വായനക്കാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം

അംഗവൈകല്യം നേരിടുന്നവരുടെ വായന ആവശ്യങ്ങൾക്കാണ് ഈ വർഷം മേള ഊന്നൽ നൽകുന്നത്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതു സംബന്ധിച്ചുള്ള വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയേഴ്സ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്പണ്ട് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്

ഇന്ത്യയിലെ വിവിധ റെയിൽവെ മേഖലകളിൽ പ്രി ഒഴിവുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്

ജി കണക്ഷൻ നൽകിയതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ്

ജി

സി

വിഷയത്തിൽ പഠനം നടത്തിയ ഉന്നതതല കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാന്ദ്രത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ എ

സ്ട്സ്ഥാന്ത്തെ ഭൂരിഭാഗം ഖനികളും അംഗീകാരമോ ലൈസൻസസോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു

അനധികൃതമായി നിരവധി ഖനികൾ പ്രവർത്തിക്കുന്നതായി മേഘാലയ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അഫ്ഗാനിസ്ഥാൻ സൂരക്ഷാ ഉപദേഷ്ടാവ് ഹംദുള്ള മോഹിബും ഇന്നലെ ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു അഫ്ഗാന്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള എല്ലാ സമാധാന ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് ശ്രീ

നിരവധി രാഷ്ട്രീയക്കാരുടെയും പൊതുജനങ്ങളുടെയും സ്വകാര്യ വിവരങ്ങളും രേഖകളും ഇന്റർനെറ്റിലൂടെ പരസൃമാക്കിയതായി ഔദ്യോഗിക വക്താവ് അറിയിച്ചു എന്നാൽ ചാൻസിലറിന്റെ ഓഫീസിൽ നിന്നും ഒരു വിധത്തിലുള്ള രേഖകളും ചോർന്നിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സൂചിപ്പിക്കുന്നു